ത തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഒരാഴ്ചകൂടി ലോക്ഡൌൺ അതിവ്യാപന മേഖലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ തുടരും

ത ഗവൺമെന്റ് വകുപ്പുകൾക്ക് ഇ മൊബിലിറ്റി പദ്ധതിയുമായി അനർട്ട് വാർത്തകൾ വിശദമായി സമൂഹത്തിൽ കൂടുതൽ ആളുകൾക്ക് രോഗസാധ്യത ഉണ്ടെന്ന വിലയിരുത്തലോടെ കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കാനും ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കോവിഡ് കണ്ടെത്താൻ നടത്തുന്ന ആന്റിജൻ ടെസ്റ്റും പി സി ആർ ടെസ്റ്റും ഒരേപോലെ രോഗനിർണ്ണയത്തിന് സഹായകമാണ് ആന്റിജൻ ടെസ്റ്റിനെപ്പറ്റി ബോധപൂർവ്വം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

സി ആർ ടെസ്റ്റിന്റെ ഫലമറിയാൻ നാലുമുതൽ ആറ് മണിക്കൂർ വരെ വേണ്ടി വരും

രണ്ട് പരിശോധനയ്ക്കും അതിന്റേതായ ചില പരിമിതികളുണ്ട് സ്ക്രീനിംഗ് ടെസ്റ്റ് എന്ന നിലയിൽ ആന്റിജൻ പരിശോധനയാണ് കൂടുതൽ മെച്ചപ്പെട്ട ഫലം നൽകുന്നത് അതിനെ മറ്റൊരർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിന് നേരെ നടത്തുന്ന വെല്ലുവിളിയും അക്രമവുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രുമ പ്രതിരോധ പ്രവർത്തനങ്ങളെ തെറ്റായ സങ്കുചിത പ്രചാരണത്തിലൂടെ കീഴ്പ്പെടുത്താമെന്ന് വന്നാൽ ഒരിടത്തും ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിയന്ത്രണങ്ങൾക്ക് ചിലർ മറ്റുചില വ്യാഖ്യാനങ്ങൾ നൽകുന്നതാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജവാർത്തകളും വിവരങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി തന്നെ എടുക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വരുത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി രേര തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ലോക്ഡൌൺ ഒരാഴ്ചകൂടി തുടരുമെന്നും അതിവ്യാപന മേഖലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഉണ്ടായിരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ചില ക്ലസ്റ്ററുകളിലെ സൂപ്പർ സ്പ്രെഡ് സമൂഹ വ്യാപനമായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

കേരളത്തിൽ ഇതുവരെ ഉണ്ടായത് രണ്ട് ലാർജ്ജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യത്തേത് പൊന്നാനിയിലും രണ്ടാമത്തേത് തിരുവനന്തപുരം നഗരത്തിലെ മൂന്ന് വാർഡുകളിലും രണ്ടിടത്തും ശാസ്ത്രീയമായ ക്ലസ്റ്റർ മാനേജ്മെന്റ് നടപടികൾ നടപ്പാക്കി വരികയാണ്

തിരുവനന്തപുരം തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ പൊലീസ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അടങ്ങിയതാണ് സംഘം

സ്വന്തം ആരോഗ്യത്തെയും സഹപ്രവർത്തകർ നിയമപാലകർ കുടുംബങ്ങൾ എന്നിവരെയും രോഗഭീഷണിയിലാക്കിയാണ് പല സമരങ്ങളും നടക്കുന്നത് യഥാർത്ഥത്തിൽ അത് സമരമല്ല നാടിനെ മഹാരോഗത്തിൽ മുക്കിക്കളയുന്ന ദുഷ്ടപ്രവൃത്തിയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മാസ്ക് ധരിക്കാതെയും ശാരീരിക അകലം പാലിക്കാതെയും അലറുകയും തുപ്പുകയും കെട്ടിപ്പിടിക്കുകയും പൊലീസുമായി മൽപ്പിടുത്തം നടത്തുകയും ചെയ്യുന്ന സമരം നാടിനെ വൻ വിപത്തിലേക്ക് നയിക്കുമെന്ന് നേതാക്കൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അണികളെങ്കിലും അതിന് തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

ഇന്നലെ രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച പൂന്തുറ മാണിക്യവിളാകം സ്വദേശി സെയ്ഫുദ്ദീന്റെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്

രുഭ കേരളത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം ആശങ്ക സൃഷ്ടിക്കുന്ന തരത്തിൽ കൂടുകയാണ്

രുമ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളെ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളാക്കാൻ പ്രാരംഭ നടപടികൾ തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

രുമ എറണാകുളം ജില്ലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു ആലുവ നഗരസഭയിലേയും കീഴ്മാട് പഞ്ചായത്തിലേയും എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാണ്

ഗൾഫ് നാടുകൾക്ക് പുറമെ ലണ്ടൻ കോലാലംപൂർ എന്നിവിടങ്ങളിൽ നിന്നും വിമാനങ്ങൾ വരുന്നുണ്ട്

സമ്പർക്ക വ്യാപനം കൂടുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത കുറഞ്ഞതുകൊണ്ടാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി

രുമ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങുകൾ പുനഃരാരംഭിച്ചു

ദേദ മൂവാറ്റുപുഴവാലി ജലസേചന പദ്ധതി കാർഷിക വ്യാവസായിക ടൂറിസം മേഖലകളിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ദേദ ഭൂതത്താൻകെട്ട് ബാരേജിന് സമാന്തരമായി നിർമ്മിച്ച പുതിയ പാലം മന്ത്രി കെ

ഇരു കരകളിലും അപ്രോച്ച് റോഡ് ഉൾപ്പെടെയാണ് പാലത്തിന്റെ നിർമ്മാണം വയനാട് ജില്ലയിൽ ഗോത്രവർഗ്ഗ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷാ കേരള ഒരുക്കിയ ഓൺലൈൻ പഠനക്സാസായ മഴവിൽപ്പൂവിന് തുടക്കമായി ഗോത്രവിഭാഗക്കാരുടെ സംസാര ഭാഷയിൽ തന്നെ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മഴവിൽപ്പൂവ് പണിയ കുറുമ കാട്ടുനായ്ക്ക അടിയ ഊരാളി കുറിച്യ ഭാഷകളിലാണ് ഓൺലൈൻ ക്ലാസുകൾ ദേഴ കൊല്ലം ചാത്തന്നൂരിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ സുരക്ഷിതമായി പാരിപ്പള്ളി ഇൻഡ്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാന്റിൽ എത്തിച്ചു അപകടത്തിൽ ആർക്കും പരുക്കില്ല വാതകചോർച്ചയും ഉണ്ടായില്ല രുമ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പച്ചത്തുരുത്ത് പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി വയനാട് മാറി